ത കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ബാക് ടു ബേസിക്സ് പ്രചാരണപരിപാടി സംഘടിപ്പിക്കും

പോളിയോ പ്രതിരോധ വാക്സിന്റെ ദേശീയതല വിതരണത്തിന് രാഷ്ട്രപതി രാം നാഥ് പ്രഥമ വനിത സവിത കോവിന്ദും കുഞ്ഞുങ്ങൾക്ക് കോവിന്ദും തുള്ളിമരുന്ന് നൽകി ഇന്നലെ വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ തുടക്കം കുറിച്ചു

രാജ്യത്തുനിന്ന് പോളിയോ രോഗം പൂർണമായും നിർമ്മാർജ്ജനം ചെയ്യുകയാണ് പൾസ് പോളിയോ പരിപാടിയുടെ ലക്ഷ്യം

തിരുവനന്തപുരം വട്ടിയൂർകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ

ശൈലജയുടെ സാന്നിധ്യത്തിൽ രാവിലെ എട്ടിന് വാക്സിൻ വിതരണം ആരംഭിക്കും കർശന കൊവിഡ് മാനദണ്ഡങ്ങ പാലിച്ചായിരിക്കും വാക്സിൻ വിതരണം ചെയ്യുക

ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ അംഗനവാടികൾസ്കൂളുകൾബസ്സ്റ്റാന്റുകൾറെയിൽവേ സ്റ്റേഷനുകൾവിമാനത്താവളങ്ങൾവായനശാലകൾ എന്നിവിടങ്ങ ളിലും പോളിയോ ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്

ഇന്നലെ മാത്രം രണ്ട് ലക്ഷത്തി ആറായിരത്തിലേറെ പേർ വാക്സിനേഷനിൽ പങ്കാളികളായി രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ പേർ വാക്സിൻ കുത്തിവെപ്പെടുത്തത്

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധിതർ

രുര കൊവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിന് ആദ്യം പഠിച്ച പാഠങ്ങൾ മറക്കാതിരിക്കാൻ ബാക് ടു ബേസിക്സ് പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ

മാസ്കും സോപ്പും സാമൂഹ്യ അകലവും ആരും മറക്കരുത് എന്ന സന്ദേശം ഉയർത്തിയായിരിക്കും പ്രചാരണപരിപാടി രാജ്യത്തെയും സംസ്ഥാനത്തെയും ആദ്യ കോവിഡ് കേസിന്റെ വാർഷിക ദിനത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബാക് ടു ബേസിക്സ് ക്യാമ്പയിൻ ശിൽപ്പശാലയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രുര എറണാകുളം ജില്ലയിലെ വർധിച്ച കോവിഡ് വ്യാപനം മുൻനിർത്തി ആർ

ആർ പരിശോധനകളുടെ എണ്ണം വർധിപ്പിക്കാൻ നോഡൽ ഓഫീസർമാരുടെ യോഗം തീരുമാനിച്ചു രോഗവ്യാപനം കൂടിയ സ്ഥലങ്ങളിൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാർ പൊലീസ് മുൻനിര പ്രവർത്തകർ തുടങ്ങിയവരെ കൂടുതൽ വിന്യസിക്കാനും ജില്ലകലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു രംഭ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി രാജ്യസഭാ ചെയർമാൻ എം വെങ്കയ്യനായിഡു വിളിച്ച രാജ്യസഭാ കക്ഷി നേതാക്കളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും സഭയുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ തേടിയാണ് യോഗം വിളിച്ചത്

രംഭ കേന്ദ്രബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും

ആഗോള സാമ്പത്തിക മാന്ദ്യവും കൊവിഡ് മഹാമാരിയും സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ നിന്ന് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാനാവശ്യമായ നിർദേശങ്ങൾ ഉത്തേജന ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ

ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിലും യു ട്യൂബിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിക്കേഷനിലും തൽസമയം മൻ കി ബാത് കാണാം ഹിന്ദി പ്രഭാഷണത്തിനുശേഷം കേരള നിലയങ്ങൾ മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണവും കേൾക്കാം രുര കേരളത്തിലെ സർകലാശാല വിദ്യാർത്ഥികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശയസംവാദ പരിപാടി നാളെ തുടങ്ങും

നാളെ കുസാറ്റിലും ആറിന് കേരള സർവകലാശാലയിലും എട്ടിന് എം

യുവകേരളം നവകേരളം ഉന്നതവിദ്യാഭ്യാസത്തിന്റെ ഭാവി വിഷയത്തെ എന്ന ആധാരമാക്കിയാണ് സംവാദം രുര വികസന പദ്ധതികളുടെ നടത്തിപ്പിൽ സമ്പൂർണ ജനപങ്കാളിത്തമെന്ന സങ്കൽപ്പം പ്രാവർത്തികമാക്കാൻ നമ്മുടെ കോഴിക്കോട് പദ്ധതിക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പദ്ധതിയുടെ ലോഞ്ച് ഓൺലൈനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ ചടങ്ങിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ ആദരിച്ചു രും റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി നാളെ മുതൽ പൊലീസും മോട്ടോർവാഹന വകുപ്പും പരിശോധനകൾ കർശനമാക്കുമെന്ന് മന്ത്രി എ

ഫെബ്രുവരി ആറുവരെ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് പരിശോധനകൾക്കായിരിക്കും പ്രാധാന്യം

ഇവർക്ക് റോഡ് സുരക്ഷയെക്കുറിച്ച് ഒരു ദിവസത്തെ നിർബന്ധിത ക്ലാസും നൽകും രംഭ ജലവിഭവ വകുപ്പിൽ കിഫ്ബി വഴി നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടും ചിലർ വിമർശനം തുടരുകയാണെന്ന് മന്ത്രി കെ

കൊല്ലം കുണ്ടറ കുടിവെള്ള പദ്ധതിയിലെ പൈപ്പ്ലൈൻ മാറ്റുന്ന ജോലിയുടെ പൂർത്തീകരണ പ്രഖ്യാപനം നടത്തുകയായിരുന്നു മന്ത്രി ഗവൺമെന്റുകൾ മാറിമാറി വന്നതാണ് പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കിയതെന്ന് ചടങ്ങിൽ അധ്യക്ഷയായിരുന്ന മന്ത്രി ജെ

കോഴിക്കോട് കോർപ്പറേഷനിലെ ബിലാത്തിക്കുളം നവീകരണവും മന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു രംഭ വ്യവസായ മേഖലയെ മെച്ചപ്പെടുത്തി കേരളത്തിന്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മന്ത്രി ഇ

കൊച്ചിയിൽ കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി

വി സബ്സ്റ്റേഷൻ മന്ത്രി എം

മൂവാറ്റുപുഴ മേഖലയിലെ ഒന്നേകാൽ ലക്ഷത്തോളം ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു

ജലസംരക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫിന്റെ ഐശ്വര്യ കേരളയാത്ര ഇന്ന് കാസർകോട് കുമ്പളയിൽ നിന്നാരംഭിക്കും പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ജാഥ വൈകിട്ട് എ ഐ

സി ജനറൽ സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും മുല്ലപ്പള്ളി രാമചന്ദ്രൻ എംഎം ഹസ്സൻ പി കെ കുഞ്ഞാലിക്കുട്ടി പി

ജോസഫ് എൻ കെ പ്രേമചന്ദ്രൻ അനൂപ് ജേക്കബ് വി

സതീശൻ തുടങ്ങിയവരടക്കം നേതാക്കൾ ജാഥയിൽ മുഴുവൻ സമയവും പങ്കെടുക്കും

സമാപന റാലി രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും

എസ് എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുനൈറ്റഡ് ഒന്നിനെതിരെ രണ്ട് ഗോളിന് മുംബൈസിററിയെ തോൽപ്പിച്ചു ഇന്ന് വൈകിട്ട് അഞ്ചിന് ഹൈദരാബാദ് എഫ് സി ചെന്നൈയിൻ എഫ് സിയെയും രാത്രി ഏഴരയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എ

യെയും നേരിടും രുര ഭാവികേരള സൃഷ്ടിക്ക് ദിശാബോധം നൽകുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആസൂത്രണബോർഡ് സംഘടിപ്പിക്കുന്ന കേരള ലുക്ക്സ് എഹെഡ് അന്താരാഷ്ട്ര സമ്മേളനം നാളെ തുടങ്ങും വെർച്വൽ പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ആഗോള പ്രശസ്ത നയരൂപീകരണ വിദഗ്ദ്ധരും വ്യവസായ പ്രമുഖരും സാങ്കേതിക രംഗത്തെ വിദഗ്ദ്ധരും പങ്കെടുക്കും രും സംസ്ഥാനത്തെ എല്ലാ മുദ്രപത്ര ഇടപാടുകൾക്കും നാളെ മുതൽ ഇ സ്റ്റാമ്പിങ് സംവിധാനം നിലവിൽവരും ഒരു ലക്ഷം രൂപയിൽ താഴെ ഇടപാടുകൾക്കും ഇ സ്റ്റാമ്പിങ് സംവിധാനമായിരിക്കും ഉപയോഗിക്കുന്നത് രുമ കഴിഞ്ഞ വർഷത്തെ തോപ്പിൽ രവി സാഹിത്യപുരസ്ക്കാരം നിഷ അനിൽകുമാറിന്റെ അവധൂതൻമാരുടെ അടയാളങ്ങൾ എന്ന നോവലിന് ലഭിച്ചു

രും വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തുക ഉയർത്താൻ ഗവൺമെന്റിന് നിർദേശം സമർപ്പിക്കാൻ ഇടുക്കി ജില്ലാ വികസന സമിതി യോഗം തീരുമാനിച്ചു ഉടുമ്പൻചോലയടക്കം പ്രദേശങ്ങളിൽ ഏലത്തോട്ടങ്ങളിൽ മൃഗങ്ങൾ വ്യാപകമായി വിള നശിപ്പിക്കുകയാണെന്ന് യോഗം വിലയിരുത്തി